പെട്രോളിനും ഡീസലിനും ജിഎസ് ടി ഏർപ്പെടുത്തുന്നതിനെ സംസ്ഥാനം പിന്തുണക്കില്ലെന്ന് മന്ത്രി ഡോ തോമസ് ഐസ ക്

അവസാന പ്രീകാർട്ടറിൽ കൊളംബിയ ഇംഗ്ലണ്ടിനെ നേരിടും ൾ ൽ ൾ സംസ്ഥാന പൊലീസ് മേധാവികളുടെ നിയമനം യു പി എസ് സിക്കു വിടണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു ഐ പി എസ് ഓഫീസർമാരെ സംസ്ഥാന ആക്ടിംഗ് പൊലീസ് മേധാവികളായി നിയമിക്കരുതെന്നും സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദേശം നൽകി വിരമിക്കാൻ മൂന്ന് മാസമെങ്കിലും ശേഷിക്കുന്ന ഓഫീസർമാരുടെ പട്ടിക യു പി എസ് സിക്ക് അയച്ചു കൊടുത്ത് ഡി ജി പിമാരെ തെരഞ്ഞെടുക്ക ണമെന്നും കോടതി നിർദേശിച്ചു യു പി എസ് സി തയ്യാറാക്കുന്ന മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് സ്ഠസ്ഥാനങ്ങൾക്ക് ഒരാളെ ഡി ജി പിയായി നിയമിക്കാം ഡി ജി പിമാർ ഉൾപ്പെടെ മുതിർന്ന പൊലീസ് ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ ഇതിന് വിരു ദ്ധമായ വൃവസ്ഥകളുണ്ടെങ്കിൽ അത് മരവിപ്പിക്കണമെന്നും സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ പറയുന്നു എറണാകുളം മഹാരാജാസ് കോളെജിലെ എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ തീവ്രവാദ സംഘടനകളെ അടിച്ചമർത്തണമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു ക്രമസമാധാനം സംസ്ഥാന വിഷയമായ തിനാൽ കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടാനാവില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് വൃക്തമാക്കി

അഭിമന്യുവിന്റെ കൊലപാതകം നിർഭാഗ്യകരമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞു ആദ്യമായാണ് കോളെജിൽ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നതെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു കൊലപാതകത്തിന് ഉത്തരവാ ദികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ മെന്ന് ആന്റണി ആവശ്യപ്പെട്ടു

കലാലയങ്ങളിൽ ശക്തി ഉറപ്പാക്കേണ്ടത് ബലപ്രയോഗത്തിലൂടെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ചില കോളെ ജുകളിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ ഏകാധിപത്യ സ്വഭാവം കാണിക്കുകയാണെന്നും ആന്റണി ആരോപിച്ചു അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ കസ്റ്റഡിയിലെടുത്ത അഞ്ചു പേരിൽ മൂന്നു പേരുടെ അറസ്റ്റ് പൊലീസ് രേഖപ്പെടുത്തി ഫാറൂ ഖ് ബിലാൽ റിയാസ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയ ത് മഹാരാജാസ് കോളെജിൽ പുതുതായി അഡ്മിഷനെടുത്ത വിദ്യാർത്ഥിയാണ് ഫാറൂഖ് ബിലാൽ ആലൂവയിലെ സ്ഥകാര്യ കോളെജിൽ എം ബി എയ്ക്കു പഠിക്കുന്നു ഫോർട്ട് കൊച്ചി സ്വദേ ശിയായ റിയാസ് വിദ്യാർത്ഥിയല്ലെന്ന് പൊലീസ് അറിയിച്ചു

പെട്രോളിനും ഡീസലിനും ജിഎസ് ടി ഏർപ്പെടുത്തുന്നതിനെ സംസ്ഥാനം പിന്തുണക്കില്ലെന്ന് മന്ത്രി ഡോ

അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഉയ രുന്ന സാഹചര്യത്തിൽ ഇന്ധനവില ഉയർന്നാൽ സംസ്ഥാനത്ത് ഇനി നികുതി ഇളവ് നൽകില്ലെന്നും തോമസ് ഐസക് വ്യക്ത മാക്കി ഇന്ധനവില വർദ്ധന ഒഴിവാക്കാൻ കൂട്ടിയ നികുതി കേന്ദ്രം കുറച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു

മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ സിബിഐ അന്വേ ഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനക്കു വിട്ടു കേസ് അന്വേ ഷിക്കുന്നതിൽ വിജിലൻസ് കടുത്ത അനാസ്ഥിയും അലംഭാവവും കാണിക്കുകയാണെന്ന് കോടതി പറഞ്ഞു

വിജി ലൻസിന് കിട്ടാത്ത രേഖകളാണ് സിബിഐയ്ക്ക് കിട്ടിയതെന്നും കോടതി അറിയിച്ചു ഓൾ കേരളാ ആന്റി കറപ്ഷൻ ആന്റ് ഹ്യൂമൺ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിൽ ജോയി കൈതാരം എന്നിവർ നൽകിയ ഹർജികളും തൃശൂർ വിജിലൻസ് കോടതിയിലെ രണ്ട് കേസു കളും അവസാനിപ്പിക്കാൻ ഗവ നല്കിയ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളുമാണ് ഹൈക്കോടതിയുടെ പരിഗ ണനയിലിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ഇന്ത്യക്കാരായ ആയിരത്തിലധികം കൈലാസ് മാനസസരോവർ യാത്രികർ നേപ്പാളിൽ കുടു ങ്ങിക്കിടക്കുന്നു മൂന്നിടങ്ങളിലായാണ് തീർത്ഥാടകർ കുടുങ്ങിക്കി ടക്കുന്നത്

കാഠ്മ ണ്ഡുവിലെ ഇന്ത്യൻ എംബസി അധികൃതർ സ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് കാലാവസ്ഥ ശരിയാകുന്നതുവരെ തീർത്ഥാടകരെ ടിബറ്റൻ പ്രദേശത്തു തന്നെ പാർപ്പിക്കാൻ ടൂർ ഓപ്പറേറ്റർമാർക്ക് എംബസി നിർദേശം നല്കി യാത്രികരെ മറ്റേതെങ്കിലും പാതയിലൂടെ സുര ക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ശ്രമം നടന്നു വരുന്നു ഹെലികോ പ്റ്ററുകൾ അടക്കം സൈനിക സ്വേനം പ്രയോജനപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് അതിനിടെ കൈലാസ് യാത്ര ്കഴിഞ്ഞ് മടങ്ങിയവരെ മോശം കാലാവസ്ഥയെ തുടർന്ന് നേപ്പാളിലെ സിമിക്കോട്ടിൽ മരിച്ച മല യാളി തീർത്ഥാടക ലീലാ അന്തർജ്ജനത്തിന്റെ മൃതദേഹം നാട്ടി ലെത്തിക്കാൻ ശ്രമം തുടരുന്നു മലപ്പുറം വണ്ടൂർ സ്വദേശിയാണ് ലീലാ അന്തർജ്ജനം

ആഭ്യന്തരമന്ത്രിയോട് സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈയിൽ കനത്ത മഴ താനെയിൽ ഭവനനിർമ്മാണ സൊസൈ റ്റിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞുവീണ് ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു നാല് വീടുകൾക്ക് കേടുപറ്റി അന്ധേരി റെയിൽവെ സ്റ്റേഷനു സമീപം നടപ്പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു

അന്ധേരി ഈസ്റ്റിനെയും അന്ധേരി വെസ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോഖലെ പാല മാണ് ഇന്ന് രാവിലെ തകർന്നത് ഇതോടെ ഇതുവഴി ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു ഇന്നലെ രാത്രി മുതൽ മുംബൈയിൽ കനത്തമഴയാണ് പെയ്യുന്നത് പലസ്ഥലങ്ങളും വെള്ളത്തിലാണ് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഒരു ദിവസ്ത്തെ കേരളാ സന്ദർശനത്തിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തും

ബി ജെ പി സംസ്ഥാന കോർകമ്മറ്റി ്യോഗത്തിലും ജില്ലാനേതാ ക്കളുടെ യോഗത്തിലും അദ്ദേഹം സംബന്ധിക്കും പാർട്ടി സംസ്ഥാന പ്രസിഡണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധ പ്പെട്ട് നിലനിൽക്കുന്ന ആശയക്കു ഴപ്പം പരിഹരിക്കു ന്നതിന് ദേശീയാധൃക്ഷൻ ഇടപെട്ടേക്കുമെന്നാണ് സൂചന ബി ഡി ജെ എസു മായി നിലനിൽക്കുന്ന അഭിപ്രായഭിന്നത പരിഹരിക്കാനും അമിത്ഷാ ശ്രമിച്ചേക്കും

കേരളത്തിൽ നിന്ന് ഉത്തർപ്രദേശിലേക്കാണ് അമിത്ഷാ യുടെ യാത്ര അയോധൃയിലെ ക്ഷേത്രത്തിൽ ആരാധനക്ക് അനുമതി നൽക ണമെന്ന ബി ജെ പി നേതാവ് ഡോ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു ഹർജി പിന്നീട് വീണ്ടും സമർപ്പിക്കാൻ ഡിവി ഷൻ ബെഞ്ച് സുബ്രഹ്മണ്യസാമിയോട് ആവശൃപ്പെട്ടു ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് സ്വാമിയുടെ ഹർജി തള്ളിക്കൊണ്ട് നിർദേശം നൽകിയത്

സുനന്ദപുഷ്കറുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോ

ഇക്കാര്യത്തിൽ ഡൽഹി പൊലീസിന്റെ നിലപാട് അറിഞ്ഞ ശേഷം ഹർജി പ്രത്യേക ജഡ്ജി നാളെ പരിഗണിക്കും ഡൽഹി യിലെ ഒരു മജിസ്ട്രേറ്റ് കോടതിയാണ് സുനന്ദപുഷ്കറിന്റെ ആത്മ ഹത്യക്കു പിന്നിൽ ഡോ ശശി തരൂരിന്റെ ക്രൂരമായ പെരുമാറ്റം പ്രേരണയായെന്ന് ആരോപിച്ച് അദ്ദേഹത്തോട് കോടതിയിൽ ഹാജ രാകാൻ ആവശ്യപ്പെട്ടത് ഇത്തരമൊരു സാഹചരൃമുണ്ടായാൽ അറസ്റ്റും ജാമ്യവും വേണ്ടിവരുമെന്ന് അദ്ദേഹം നൽകിയ ഹർജി യിൽ പറയുന്നു പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എം പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് ആരം ഭിച്ചു

റേഷൻ വിഷയത്തിൽ സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചതും കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഉൾപ്പെടെ കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും ലോകകപ്പ് ഫുട്ബോളിൽ പ്രീകാർട്ടർ മത്സരങ്ങൾ ഇന്നവ സാനിക്കും

അവസാന മത്സരത്തിൽ ബെൽജിയത്തോട് തോറ്റെങ്കിലും അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കാർട്ടർ മത്സരങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കും ആദൃമത്സ രത്തിൽ ഉറുഗ്വേ ഫ്രാൻസിനെയും രണ്ടാം മത്സ്രത്തിൽ ബ്രസീൽ ബെൽജിയത്തെയും നേരിടും

അടുത്ത വർഷത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് മുന്നോടിയായാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം

കെ ശശീ ന്ദ്രൻ ടി പി രാമകൃഷ്ണൻ പി തിലോത്തമൻ എന്നിവർ തിരുവ നന്തപുരത്ത് തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ച യിലാണ് തീരുമാനം

ഉരുൾപൊട്ടലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ച റൂട്ടിൽ ഇന്നലെ ചെറുവാഹനങ്ങൾ കടത്തി വിടാൻ തീരുമാനിച്ചിരുന്നു പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ക്സിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭി ക്കാത്തതിനെ തുടർന്നാണ് മൂന്ന് ദിവസത്തേക്കു കൂടി നിരോധനം നീട്ടിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയു വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതിനും ഹജ്ജ് ക്യാമ്പ് പുനസ്ഥാപി ക്കുന്നതിനും പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാവ ശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി കോഴിക്കോട്ട് ഉപവസിക്കും

ആദ്യഘട്ട സമരം ഫലം കണ്ടില്ലെങ്കിൽ വിമാനത്താ വളത്തിൽ അനിശ്ചിതകാല ഉപവാസമനു ഷ്ഠിക്കു മെന്നും രാഘവൻ പറഞ്ഞു